ബില്ലിനെ എതിർത്ത് പ്രതിപക്ഷം രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് ഉയർന്നു

വൈറസുകളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു

ജില്ലകളിൽ റെഡ് അലേർട്ട്

വയനാട് ഇടുക്കി ജില്ലകളിലാണ് താരതമ്യേന രോഗികൾ കുറവ്

സംസ്ഥാനത്ത് ആര്ക്ക രണ്ട് ലക്ഷത്തിലധികം പേരാണ് കോവിഡ് നിരീക്ഷണത്തിൽ ക്കഴിയുന്നത്

സംസ്ഥാനത്ത് ഇന്നലെ പതിന്നെട്ട് ്കോവിഡ് മരണം സ്ഥിരീകരിച്ചു

വർദ്ധിച്ച വ്യാപനശേഷി വൈറസുകളാണ് കേരളത്തിൽ കാണപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പ്രദേശത്തെ മത്സൃ കച്ചവടക്കാരൻ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് നെടുങ്കണ്ടത്തും ചുറ്റുവട്ടങ്ങളിലുമായി രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി

അമർ ഫെറ്റിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

എന്നാൽ മഹാരാഷ്ട്ര ആന്ധ്രപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലെ കോവിഡ് വ്യാപനം ആശങ്ക ഉയർത്തുകയാണ്

കാർഷിക വിപണന നിയന്ത്രണം എടുത്തുകളയുന്ന ബില്ലും കരാർ കൃഷി അനുവദിക്കുന്ന ബില്ലുമാണ് അവതരിപ്പിച്ചത് വിപ്തവകരമായ മാറ്റം കൊണ്ടുവരാൻ കാർഷികബില്ലുകളിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ഉറപ്പാക്കാനും ബില്ലുകൾ സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് ഇടത് ടി എം സി എം പി മാർ ബില്ലിനെ എതിർത്തു

കെ രാഘവൻ എം പിക്ക് ലോക്സഭയിൽ മറുപടി നൽകി

സുനിൽകു്മാർ സംസ്ഥാനത്ത് പച്ചക്കറി കൃഷിയിൽ വൻ കുതിച്ചുചാട്ടം സാധ്യമായതായി കൃഷിമന്ത്രി വി

ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മലമ്പുഴ പോത്തുണ്ടി ഡാമുകൾ തുറന്നു

ആറിനു കുറുകെയുള്ള പാലത്തിന്റെ തൂണിന് സമീപം കുടുങ്ങിപ്പോയ ബൈസൺവാലി സ്വദേശി ബേബിച്ചനെ ആണ് രക്ഷപെടുത്തിയത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശ്വാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ